ഫോനി ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടം

പ്രധാനമന്ത്രി നരേന്ദ്രുമോദി തിങ്കളാഴ്ച സന്ദർശനം നടത്തും

ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാംഘട്ടത്തിലേ ന് ക്കുള്ള പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണി ക്കൂറുകൾ മാത്രം

ന്നില്പ്പിൽ ഫോണിയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ബംഗാളില്പ്പ് ഫ്റ്റ്രപ്പധി ജില്ലകളിൽ ശക്തമായ മഴയും കാറ്റും അനുഭവപ്പെടുക്യാണ് ദിഗ മണ്ഡർമണി താജ്പൂർ സന്ദേശ്കാലി കോണ്ട ക്രിസിവിടങ്ങളിൽ നിരവധി വീടുകളും മരങ്ങളും നിലംപൊത്ത്രീ പ്രഖ്പൂർ കടന്ന് ബംഗ്ലാദേശിലേക്കാണ് ഫോണിക്കാറ്റിന്റെ പ്രയാണ്ം

തീരമേഖലകളിൽ അതീവ ജാഗ്രത നിർദേശം നൽകിയിട്ടുണ്ട്

ഇന്നലെ ഒഡീഷയിലെ പുരിയിൽ ഫോനി പത്തു പേരുടെ ജീവനെടുത്തിരുന്നു

വൈദ്യുതി ബന്ധം പൂർവ്വ സ്ഥിതിയിലാക്കാൻ ഭഗീരഥപ്രയത്നം വേണ്ടിവരുമെന്ന് പുരിയിൽ സന്ദർശനം നടത്തിയ ശേഷം ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് പ്രതികരിച്ചു

മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതിനാൽ ജീവഹാനി അധികം ഉണ്ടായിട്ടില്ലെന്ന് ദേശീയ ദുരന്തനിവാരണ സേന ഡി ഐ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഒഡീഷയിലെയും ബംഗാളിലെയും അസമിലെയും ഗവർണർമാരുമായും മുഖ്യമന്ത്രിമാരുമായും പ്രധാനമന്ത്രി സ്ഥിതികൾ ചർച്ച ചെയ്തു സംസ്ഥാനങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ലഭ്യമാക്കുമെന്നും ശ്രീ നരേന്ദ്രമോദി ട്വിറ്ററിൽ അറിയിച്ചു

ഇന്നലെ രാത്രി മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായ മഴ പെയ്യുകയാണ്

എൻ ദുരന്ത നിവാരണ ഏജൻസി ജനീവ ആസ്ഥാനമായ യു എൻ ദുരന്ത നിവാരണ അതോറിറ്റി തുലിവനും സെക്രട്ടറി ജനറൽ പ്രതിനിധിയുമാണ് ഇന്ത്യൻ കാലാവസ്ഥ പ്രവചന കേന്ദ്രത്തെ പ്രശംസിച്ചത്

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ വോയിസ് മധ്യപ്രദേശിലെ ഏഴ് മണ്ഡലങ്ങളിലും അഞ്ചാം ഘട്ടത്തിലാണ് പോളിംഗ് മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇതോടൊപ്പമാണ് വൈകിട്ട് നടക്കുന്ന കൊട്ടിക്കലാശം ആവേശമാക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും പ്രധാനമന്ത്രി അടക്കമുള്ള ദേശീയനേതാക്കൾ ഇന്നും വിവിധ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സജീവമാണ് ശ്രീ നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേ ശിലെ പ്രതാപ് ഗാർഹിലും ബസ്തിയിലും റാലികളെ അഭിസംബോധന ചെയ്യും ബീഹാറിലെ വാൽമീകി നഗറിലെ പൊതുസമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും

കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ സാന്നിധ്യത്തിൽ അമേഠിയിൽ നടക്കുന്ന റോഡ്ഷോ യിലും അദ്ദേഹം പങ്കെട്ടുക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജെ

കഴിഞ്ഞമാസം പരിശീലനത്തിനിടെയാണ് ശ്രീ നീരജിന് കൈമുട്ട് വേദന അനുഭവപ്പെട്ട് തുടങ്ങിയത്

എ ഭരണകാലത്ത് പാകിസ്ഥാന് എതിരായി നടത്തിയ മിന്നലാക്രണത്തെ ചോദ്യം ചെയ്ത പ്രധാനമന്ത്രിയെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽഗാന്ധി വിമർശിച്ചു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന സൈന്യത്തെ അവഹേളിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു

രാജ്യത്തെ മൂന്ന് സേനാവിഭാഗങ്ങളും സ്വകാര്യസ്തായാണ് പ്രധാനമന്ത്രി കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

പൂൽവാമ ഭീകരാക്രമണത്തിനുശേഷം ഇന്ത്യ നടത്തിയ ശ്രമങ്ങളെ ഫ്രാൻസ് അകമഴിഞ്ഞ് പിൻതുണച്ചിരുന്നു ആക്രമണത്തെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി അപലപിച്ചതും അ അസറിനെ കൊടുംഭീകരനായി പ്രഖ്യാപിച്ചതിനും ഫ്രാൻസിന്റെ നിർണായകമായ ഇടപെടൽ കാരണമാണ്

ലങ്കൻ ആക്രമണത്തിൽ കേരളബന്ധം ശ്രീലങ്കൻ സേന സ്ഥിരീകരിക്കുന്നത് ഇതാദ്യമായാണ് ബിബിസിക്കു നൽകിയ അഭിമുഖത്തിലാണ് ലങ്കൻ കരസേനാ മേധാവി ഇക്കാര്യം വ്യക്തമാക്കിയത് ആക്രമണത്തിൽ പങ്കെടുത്തവരും പിന്നിൽ പ്രവർത്തിച്ചവരും ഇന്ത്യയിലേക്കു പോയിട്ടുണ്ട് അവർ കൾമീർ ബെംഗളൂരു എന്നിവിടങ്ങളിലെത്തി തുടർന്ന് അവർ കേരളത്തിലേക്കു പോയതായും അദ്ദേഹം പറഞ്ഞു

തലശ്ശേരി ഓടത്തിൽ പള്ളിയിൽ മഗ്രിബ് നമസ്കാര ശേഷം മയ്യത്ത് നമസ്കാരവും ഖബറട്ക്കുപ്പു്ം നടക്കുമെന്ന് കൊട്ടാരം പ്രതിനിധികൾ അറിയിച്ചു

വാണിജ്യ സംഘടനയായ ഇന്ത്യൻ പഞ്ചസാര മിൽ അസോസിയേഷനാണ് ഇതുസംബന്ധിച്ച കണക്കുകൾ പുറത്ത്വിട്ടത്

വിമാനത്തിലുള്ള എല്ലാവരും സുരക്ഷിതരാണെന്ന് ജാക്സൺവിൽ മേയർ ട്വിറ്ററിൽ അറിയിച്ചു

വൈകിട്ട് നാലിന് ഡൽഹിയിലാണ് മത്സരം രണ്ടാമത്തെ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും